കേന്ദ്ര കാർഷിക സർവകലാശാല കോളേജ് അഡ്മിനി സ്ട്രേഷൻ മന്ദിരങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നിർവ്വഹിക്കും

ബി

ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു

ഇ നീറ്റ് പരീക്ഷകൾ നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് ആറ് സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ സംയുക്ത പുനഃപരിശോധന ഹർജി നൽകി പരീക്ഷ മാറ്റിവയ്ക്കണമെന്ന വിദ്യാർത്ഥികളുടെ ഹർജി തള്ളിയ കോടതി വിധിക്കെതിരെയാണ് ബംഗാൾ മഹാരാഷ്ട്ര രാജസ്ഥാൻ പഞ്ചാബ് ചത്തീസ്ഗഢ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ സുപ്രീംകോടതിയെ സമീപിച്ചത് അടുത്തമാസം ഒന്ന് മുതൽ ആറ് വരെ ജെ

ഒരേ ജില്ലയിൽ തന്നെ ഒട്ടേറെ പരീക്ഷാകേന്ദ്രങ്ങൾ ഉണ്ടെന്നും ലക്ഷക്കണക്കിന് വിദ്യാർഥികൾ എത്തുമ്പോൾ സുരക്ഷാമാന്റ്രദണ്ഡങ്ങൾ പ്രശ്നത്തിൽ ആകുമെന്നും ചൂണ്ടിക്കാട്ടിയുട്ടുണ്ട് സംസ്ഥാനങ്ങൾ പുനഃപരിശോധനാ ഹർജി നൽകിയത്

പുൽവാമ ജില്ലയിൽ സദൂര മേഖലയിൽ നടന്ന തിരച്ചിലിനിടെയാണ് ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത് മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് സംയുക്ത സേനാ വിഭാഗങ്ങൾ തിരച്ചിൽ നടത്തിയത്

ഭീകരരുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു

കാർഷിക വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിൽ നൂതന സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ ആണ് ചുനൌത്തി ചലഞ്ചിൽ പങ്കെടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭകർക്ക് സർക്കാർ സഹായങ്ങൾ നൽകും രാജ്യത്തെ യുവസംരംഭകരെ ഈ പദ്ധതിയിലേക്ക് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് സ്വാഗതം ചെയ്തു

ബി

കോവിഡ് ഉയർത്തിയ പ്രതിസന്ധി ഇനിയും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ മൊറട്ടോറിയം ദീർഘിപ്പിക്കുന്നത് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് രീതിയെ തന്നെ ബാധിക്കുമെന്നതിനാൽ ആണിത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വ്യവസായികളേയും വൃക്തികളെയും സഹായിക്കാനായി റിസർവ് ബാങ്ക് മാർച്ച് ഒന്നു മുതൽ ആറു മാസത്തേക്ക് മൊറട്ടോറിയം നീട്ടി നൽകിയിരുന്നു

പാർലമെന്റിന്റെ ഇർുസ്ഭകൾ ആരോഗൃ മന്ത്രാലയം ഡി

ഡി ഒ മറ്റ് ഏജ്ടൻസികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ക്കൂർ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം ആരോഗൃമന്ത്രാലയത്തിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാവും ഇരുസഭകളിലും സമ്മേള്നത്തിന് ഇരിപ്പിട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയെന്ന് യ്യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു സമ്മേളനത്തിനാവശ്യമായ മറ്റ് സമഗ്രമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയ്ക്ക് തുടർച്ചയായി മൂന്ന് തവണ ഒളിമ്പിക്സിൽ ഹോക്കി സ്വർണ്ണമെഡൽ നേടിക്കൊടുത്ത ടീമുകളിലെ സുപ്രധാന കളിക്കാരനായിരുന്നു ധ്യാൻ ചന്ദ്

ഹോക്കി കളിയിലെ ഒരു മാന്ത്രികനായാണ് ഹോക്കി പ്രേമികൾ അദ്ദേഹത്തെ കണക്കാക്കിയത്

ഫിറ്റ് ഇന്ത്യ പോലുള്ള ജനകീയ പരിപാടികൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അതിലൂടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്നും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആവശ്യപ്പെട്ടു ഹോക്കി സ്റ്റിക്കിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയി മേജർ ധ്യാൻ ചന്ദിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും വിവിധ്യ ്കായിക ഇനങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മികച്ച് നേട്ടം കൈവരിച്ച ഇന്ത്യൻ കായിക താരങ്ങളുടെ നേട്ടം ആഘോഷിക്കാനുമാണ് രാജ്യം ദേശീയ കായിക ദിനം ആചരിക്കുന്ന്റ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം അർജുന പുരസ്കാരം ദ്രോണാചാര്യ പുരസ്കാരം ടെൻസിങ് നോർഗെ ദേശീയ ധീരതാ പുരസ്കാരം രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം എന്നിവ രാഷ്ട്രപതി വിതരണം ചെയ്തു

മത്സരങ്ങൾക്കായി യു

ഇ യിൽ എത്തിയ അദ്ദേഹം വൃക്തിപരമായ കാരണങ്ങളാൽ ഇന്തൃയിലേക്ക് മടങ്ങുകയാണെന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് ട്വിറ്ററിലൂടെ അറിയിച്ചു അദ്ദേഹത്തിനും കുടുംബത്തിനും പരിപൂർണ്ണ പിന്തുണ നൽകുന്നതായും ടീം അറിയിച്ചു

ഇ യിൽ നടക്കുന്നത്

കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് ദൽവാസ് നഷ്രി പീദ്ദ എന്നീ സ്ഥലങ്ങളിലെ റോഡുകൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചിരുന്നു